രണ്ടു ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ഇന്ന് അഹമ്മദാബാദിലെത്തും നമസ്തേ ട്രംപ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും പങ്കെടുക്കും

കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്ന പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു

കായിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി എല്ലാ ജില്ലകളിലും ജി വി രാജ മോഡൽ സ്പോർട്സ് സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ

ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും കലാപാരമ്പര്യവവും വിളിച്ചോതുന്ന നിരവധി പരിപാടികൾ അരങ്ങേറും

ഇന്ന് വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന് നാളെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക വരവേൽപ്പ് നൽകും

ഇതേതുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി മോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും വ്യാപാര നിക്ഷേപം പ്രതിരോധം ഭീകരവിരുദ്ധ പ്രവർത്തനം ഊർജ്ജസുരക്ഷ ഇന്തോ പസഫിക് മേഖലയിലെ സ്ഥിതിഗതി തുടങ്ങി ഉഭയകക്ഷി മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും

നാളെ വൈകിട്ട് ട്രംപ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കും രാഷ്ട്രപതിഭവനിൽ വിരുന്നിൽ പങ്കെടുത്തശേഷം ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങും ഭാര്യ മെലാനിയ മകൾ ഇവാൻക മരുമകൻ ജറദ്കുഷ്നർ എന്നിവരും മുതിർന്ന നേതാക്കളും ട്രംപിനൊപ്പം ഇന്ത്യയിലെത്തും

ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് പരിഗണിച്ചാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു ഏതൊരു രാജ്യവും പോലെ വൈറസിന്റെ വ്യാപനം തട്ടയേണ്ടത് ഇന്ത്യയുടെയും ഉത്തരവാദിത്വമാണെന്ന് ശ്രീ

സർക്കാരിനെക്കുറിച്ച് ബിള്ളിപ്പിയുടെ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് മുക്കാർാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെ പൊതുജന താത്പര്യാർത്ഥമുള്ള നല്ല തീരുമാനങ്ങളാണ് ഇതുവരെ തന്റെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗാഡി സർക്കാർ എടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കാർഷിക വായ്പ എഴുതി തള്ളുന്നത് സംബന്ധിച്ച് ഇരുപതിനായിരം കർഷകരുടെ ആദ്യ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറഞ്ഞു

നിയമസഭയുടെ ഇരുവിഭാഗങ്ങളായ ലെജിസ്ത്രേറ്റീവ് അസംബ്ലിയുടെയും ലെജിസ്തേറ്റീവ് കൌൺസിലിന്റെയും സംയുക്ത യോഗത്തെ ഗവർണർ ഫാഗു ചൌഹാൻ അഭിസംബോധന ചെയ്യും ഗവർണറുടെ അഭിസംബോധനയ്ക്ക് ശേഷം നടപ്പു വർഷത്തെ സാമ്പത്തിക സർവേ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും

കൊല്ലം ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിന്റെ രണ്ടാം നിലയിൽ ആരംഭിച്ച സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുക ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് കായികതാരങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഫിറ്റ്നസ് സെന്ററിനുള്ളത് കായിക താരങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ ദിനബത്ത എന്നിവ ബാങ്ക് അക്കൌണ്ട് വഴി നേരിട്ട് നൽകും തദ്ദേശ സ്ഥാപനതലങ്ങളിലും സ്പോർട്സ് കൌൺസ്ട്രിലുകൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദേശിച്ചു

സ്വന്തമായി ഭൂമിയുള്ള കർഷക കുടുംബങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി കൊണ്ടുവന്നത്

കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ വർഷം ആറായിരം രൂപ സർക്കാർ സഹായമായി ലഭിക്കുന്ന പദ്ധതിയാണിത്

രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുകയാണ് തുടക്കത്തിൽ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പിന്നീട് ഭൂമിയുടെ വിസ്തൃതി നോക്കാതെ എല്ലാ കർഷകരെയും പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചു ഇതുവരെ കേന്ദ്രം പദ്ധതിക്ക് കീഴിൽ അൻപതിനായിരം കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്

ചൈനയുടെ പുറത്ത് വൈറസ് ബാൻറ്റെ തുടർന്നുള്ള മരണസംഖ്യയിൽ ഏറ്റവും ഉയർന്നതാണ് ഇട്ട്രനീലേത്

വളരെ വേഗമാണ് കൊറോണ വൈറസ് പടരുന്നതെന്നും നിയന്ത്രിക്കാൻ പ്രയാസമുണ്ടാകുന്നുണ്ടെന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു

ഇന്ത്യൻ ടീമിനെ ഹർമൺ പ്രീത് കൌറും ബംഗ്ലാദേശ് ടീമിനെ സൽമ ഖാത്തൂനുമാണ് നയിക്കുന്നത്

വിജയികളുടെ പേരു വിവരം പ്രഖ്യാപിച്ചെങ്കിലും അവരുടെ രാഷ്ട്രീയ നിറം പ്രതിപാദിച്ചിട്ടില്ല

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം സഹകരണം പ്ങ്കാളിത്തം എന്നിവയാണ് ഗുവഹത്തിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട ഇന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ സംബന്ധിക്കും

എം

ഫൈനലിൽ ആതിഥേയരായ ഫ്രാൻസിന്റെ താരം ഹരുത്യൂൻ ബർഗ്സെഗ്യാനെ തോൽപ്പിച്ചാണ് ഗുകേഷ് വിജയം കൈവരിച്ചത്

ഈ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനത്തിന് കേരളം കൂടുതൽ ഊന്നൽ നൽകി വരുന്നു